സംഘടനകൾ നടത്തുന്ന കായിക പരിശീലനം നിരോധിക്കാൻ നടപടിയെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ

അല്ലാത്തവ നിരോധിക്കാൻ ഗവൺമെന്റിന് അധികാരമൂണ്ട് ഇവ പരിശോധിക്കാൻ എസ് ഐ

കെഎസ്ആർടിസി ബസുകൾ പടിപടിയായി സിഎൻജിയിലേക്ക് മാറ്റുമെന്ന് ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു